ത മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൂടെ ആളുകൾ അനധികൃതമായി സഞ്ചരിക്കുന്നത് തടയും

ത ഇന്ന് റംസാൻ മാസപ്പിറവി കാണുന്നവർ വിവരം അറിയിക്കണമെന്ന് വിവിധ ഖാസിമാർ ആവശ്യപ്പെട്ടു വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാനും ഒരാഴ്ചക്കകം പുതിയ കർമ്മപദ്ധതി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു കാലവർഷത്തിന് മുമ്പുതന്നെ ഇത് നടപ്പാക്കാൻ പ്രവർത്തനങ്ങൾ തുടങ്ങും

ഓരോ പഞ്ചായത്തിലെയും തരിശിട്ട പ്രദേശങ്ങൾ ആസൂത്രണ ബോർഡ് കണ്ടെത്തും കൃഷിയുടെ പരമ്പരാഗത രീതിയിൽനിന്ന് വ്യത്യസ്തമായി വെള്ളത്തിലും മട്ടുപ്പാവിലും ഗ്രോബാഗിലും കൃഷിരീതികൾ ചെയ്യുന്ന പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നബാർഡ് സഹായത്തോടെ കാർഷിക രംഗത്തെ പുതിയ ദൌത്യങ്ങൾക്ക് ആവശ്യമായ വായ്പ ലഭ്യമാക്കാൻ വിലുപമായ പദ്ധതി തയ്യാറാക്കും കാലി വളർത്തലിന് പുറമെ കോഴി പന്നി ആട് പോത്ത് മത്സ്യം എന്നിവയുടെ കൃഷിയും വ്യാപിപ്പിക്കും കേരള ചിക്കൻ പദ്ധതി സംസ്ഥാന വ്യാപകമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പാൽ ഉല്പാദനം വർദ്ധിച്ചാൽ അധികം വരുന്ന പാൽ പാൽപ്പൊടിയോ കണ്ടൻസ്ഡ് മിൽക്കോ ആക്കി മാറ്റാൻ ആധുനിക പ്ലാന്റുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കും പാലിൽനിന്ന് മൂല്യവർധിത ഉല്പന്നങ്ങൾ കൂടുതലായി ഉല്പാദിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ദേഴ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് പ്രദേശങ്ങളിലൂടെ ആളുകൾ അനധികൃതമായി സഞ്ചരിക്കുന്നത് തടയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു സംസ്ഥാനത്തേക്ക് കടന്നുകയറ്റം പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ നടപടികൾ എടുത്തുകഴിഞ്ഞു കണ്ടെയ്നർ ലോറികളടക്കം ചരക്ക് വാഹനങ്ങൾ വിശദമായി പരിശോധിച്ച് യാത്രക്കാർ അകത്തില്ലെന്ന് ഉറപ്പാക്കും അതിർത്തികളിലെ ആളുകൾ കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ മേഖലയിലെ പൊലീസ് സ്റ്റേഷനുകൾ ബൈക്ക് പട്രോൾ സംവിധാനം ഊർജ്ജിതമാക്കി മൊബൈൽ പട്രോളിംഗും ഉണ്ടായിരിക്കും അതിർത്തി പങ്കിടുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ഡി

പി തലത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രത്യേക ചുമതലകൾ ഇവർ നിർവ്വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിദേശത്തുനിന്നും ഇതര വരുന്നവരുടെയും മുതിർന്ന പൌരന്മാരുടെയും ജീവിതശൈലി രോഗം ബാധിച്ചവരുടെയും പട്ടിക തയ്യാറാക്കുന്നത് ആശാ വർക്കർമാരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും പിണറായി വിജയൻ അറിയിച്ചു

കണ്ണൂരിൽ ഏഴുപേർക്കും കോഴിക്കോട്ട് രണ്ടുപേർക്കും കോട്ടയം മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗബാധ

ഇന്നലെ രോഗം കണ്ടെത്തിയവരിൽ മൂന്നുപേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത് അഞ്ചുപേർ വിദേശത്തുനിന്ന് വന്നവരാണ് രുര ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ചികിത്സയിൽ കഴിയുന്ന കണ്ണൂരിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കി ഏഴു പേർക്കാണ് ഇന്നലെ കണ്ണൂർ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്

വിശദാംശങ്ങൾ നൽകുന്നത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ

ചങ്ങനാശ്ശേരി സ്വദേശി ജോസഫ് മാത്യുവാണ് ഡിട്രോയിറ്റിൽ മരിച്ചത്

കോവിഡ് സ്ഥിരീകരിച്ച് ഇപ്പോൾ കമ്പംമേട്ടിലെ കോവിഡ് സെന്ററിൽ കഴിയുന്ന പാലാ സ്വദേശിനിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു

കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ച രണ്ടുപേരിൽ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയും എടച്ചേരിയിലെ കോവിഡ് രോഗിയെ പരിചരിച്ച സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാണ് ഇരുവർക്കും രോഗ ലക്ഷണങ്ങളില്ല ഇവരുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ്

ഇന്ന് ജില്ലയിൽ പരിശോധന കർശനമാക്കുമെന്ന് സിറ്റി പൊലീസ് കമ്മീഷണർ അറിയിച്ചു വീടിന് പുറത്തുപോവുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും അല്ലാത്തവർക്കെതിരെ എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് പ്രകാരം നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ദേശ കാസർകോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി വിശദാംശങ്ങളുമായി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്

തൃശൂർ ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചവരെല്ലാം തന്നെ രോഗം മാറി ആശുപത്രി വിട്ടു

ഇടുക്കി ജില്ലയിൽ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിരുന്ന തൊടുപുഴ നഗരസഭാ പരിധിയും അടിമാലിയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ കുമ്പംകല്ല് ഉൾപ്പെടുന്ന വാർഡിലും മറ്റ് ഹോട്ട്സ്പോട്ടുകളിലും കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്

രുമ രാജ്യത്തെ കൊറോണ സാഹചര്യവും സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥയും വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അടുത്ത തിങ്കളാഴ്ച സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്

താൽക്കാലികമായി രണ്ടുവർഷത്തേക്കാണ് ഇത്തരം കോടതികൾക്ക് അനുമതി നൽകുന്നത് രുമ ഇന്ന് റംസാൻ മാസപ്പിറവി ദർശിക്കുന്നവർ വിവരമറിയിക്കണമെന്ന് വിവിധ ഖാസിമാർ ആവശ്യപ്പെട്ടു പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ സയ്യിദ് ഇബ്രാഹീം ഖലീലുൽ ബുഖാരി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ തുടങ്ങിയവരാണ് പ്രസ്താവനയിൽ കോഴിക്കോട്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്